തയ്യാറാക്കി മൂലൃം നിർണയിക്കാൻ കേരള ഹൈക്കോടതി മുൻ ജഡ്ജി സി

ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു

കനത്ത സുരക്ഷയിലാണ് വോട്ടെടുപ്പ് കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് ഗോപി

ഏറ്റവും കുറവ് പേർ മത്സരിക്കുന്നത് പട്ടേൽ നഗർ മണ്ഡലത്തിലാണ് നാല് പേരാണ് ഇവിടെ മത്സരരംഗത്തുള്ളത്

വോട്ടർമാർക്ക് വേണ്ട എല്ലാ സൌകര്യങ്ങളും തിര്ക്കെത്തുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയതായി ഡൽഹി മുഖ്യ തെരഞ്ഞെട്ടുപ്പ് ഓഫീസർ ഡോ

വോട്ടെണ്ണൽ ചൊവ്വാഴ്ച നടക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി

അഞ്ച് ദിവസത്തെ സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ ശ്രീലങ്കൻ പ്രധാനമന്ത്രി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെയും സന്ദർശിക്കും വിദേശകാര്യ മന്ത്രി എസ്

രാഷ്ട്രപതി ഭവനിൽ ഇന്ന് അദ്ദേഹത്തിന് ആചാരപരമായ വരവേൽപ്പ് നൽകും

പ്രധാനമന്ത്രിപദം ഏറ്റെടുത്തശേഷമുള്ള രജപക്സെയുടെ ആദ്യ ഇന്ത്യാ സന്ദർശനമാണിത്

സാക്ഷിട്ടയ്ക്ക് സ്വാധീനിക്കാൻ സാധ്യതയുള്ളതിനാൽ വിസ്താരം കഴിയുന്നതുഷ്ക്ക് ജാമ്യം അനുവദിക്കരുതെന്നാണ് എൻഫോ ഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ്വാദം

ഹൈദരാബാദിനെയും സെക്കന്തരാബാദിനെയും ബന്ധിപ്പിക്കുന്നതാണ് മെട്രോ സർവീസ് ലോകത്തെ ഏറ്റവും വലിയ പൊതു സ്വകാരൃ പങ്കാളിത്ത മെട്രോ സർവീസാണ് ഹൈദരാബാദ് മെട്രോ ഡൽഹി കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും ദൈർഘ്യമുള്ള മെട്രോ സർവീസാണിത്

ഉച്ചയ്ക്ക് നടക്കുന്ന സമാപന ചടങ്ങിൽ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷത വഹിക്കും

ബഹിരാകാശ മേഖലയിലെ പങ്കാളിത്തമായിരുന്നു ഏറെ ശ്രദ്ധേയം

പന്തളം രാജകുടുംബത്തിലെ രണ്ട് വിഭാഗങ്ങൾ തിരുവാഭരണത്തിൽ അവകാശം ഉന്നയിച്ച പശ്ചാത്തലത്തിലാണ് ിന്നടപടി അവകാശ തർക്ക വിഷയത്തിൽ രമ്യമായ പരിഹാരം കാണൂാർ അ്റ്റോർണി ജനറൽ കെ

വേണുഗോപാൽ മധ്യസ്ഥനാകണമെന്നും കോടതി നിർദേശിച്ചു ജസ്റ്റിസ് എൻ

രാമസുബ്രഹ്മണ്യൻ എന്നിവരടങ്ങുന്ന ബഞ്ച് നാലാഴ്ച്ചക്കക്ം വീണ്ടും കേസ് പരിഗണിക്കും

രണ്ട് ദശാബ്ദങ്ങൾക്ക് മുൻപ് ചൈനയിലും ഹോങ്കോങ്ങിലുമായി സാർസ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണത്തെക്കാൾ അധികമാണ് ഇത്

എന്നാൽ സംസ്ഥാനത്ത് നിലവിലുള്ള കർശന ജാഗ്രതയും നിരീക്ഷണവും തുടരുമെന്നും മന്ത്രി കെ കെ ശൈലജ അറിയിച്ചു

രോഗികളുമായി പ്രാഥമികതലത്തിൽ സമ്പർക്കമുണ്ടായിരുന്ന എല്ലാ വൃക്തികളും കർശന നിരീക്ഷണത്തിലാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സംഘം സംസ്ഥാനം സന്ദർശിച്ച് ഒരുക്കങ്ങളിലും പ്രവർത്തനങ്ങളിലും തൃപ്തി അറിയിച്ചു

ചീഫ് സെക്രൂട്ടറീയുടെ അധ്യക്ഷതയിൽ ചേർന്ന സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യ്യോഗമാണ് സംസ്ഥാന ദുരന്ത പ്രഖ്യാപനം പിൻവലിച്ചത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇവർക്കായി സ്റ്റെറിലൈസ് ചെയ്ത ആംബുലൻസുകൾ വിമാനത്താവളത്തിൽ ഒരുക്കിയിരുന്നു

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം പ്രതിനിധി സുരേഷ് കുമാർ

വൈദ്യുതി വിതരണം കൂടുതൽ കാര്യക്ഷമ്മാക്കാനും വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാനും ദൃുതി പദ്ധതി തൂടങ്ങിയവ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടു ണ്ടെന്നും അദ്ദേഹം ഫെയ്സ് ബ്രുക്ക് കുറിപ്പിൽ പറഞ്ഞു

തൊഴിൽ വകുപ്പിനു കീഴിലുള്ള ക്ഷേമനിധി ബോർഡുകൾ ഈ ലക്ഷ്യവുമായി മുന്നോട്ടു പോകുകയാണെന്നും ട്രേഡ് യൂണിയ നുകളുടേതടക്കം സഹകരണം ഇക്കാര്യത്തിൽ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി

കഴിഞ്ഞ രണ്ടാം തീയതി തിരക്കേറിയ ലാൽചൌക്കിലുണ്ടായ ഗ്രനേഡ് ആക്രമണത്തിൽ നാല് പ്രദേശവാസികൾക്കും രണ്ട് സിആർപിഎഫ് ജവാൻമാർക്കും പരിക്കേറ്റിരുന്നു അറസ്റ്റിലായവർക്ക് ഭീകരസംഘടനയായ ജയ്ഷെ മുഹമ്മദുമായി ബന്ധമുണ്ടെന്ന് ശ്രീനഗർ എസ് പി ഹസീബ് മുഗൾ അറിയിച്ചു

അതേസമയം പുരുഷ ടീം ടൂർണമെന്റിൽ പങ്കെടുക്കും ടീം നാളെ രാത്രി മനിലയിലേയ്ക്ക് തിരിക്കുമെന്ന് ഇന്ത്യൻ ബാഡ്മിന്റൺ അസോസിയേഷൻ അറിയിച്ചു